നാല് ടീമുകളായി തിരിഞ്ഞ് തിങ്കളാഴ്ച വരെയാണ് പന്ത്രണ്ട് ജില്ലകളിൽ സംഘ ത്തിന്റെ സന്ദർശനം ഇടുക്കി പത്തനംതിട്ട കോട്ടയം ജില്ലകൾ കേന്ദ്രസംഘ ത്തിന്റെ മേധാവി ആഭൃന്തര മന്ത്രാലയത്തിലെ സ്പെഷൃൽ സെക്രട്ടറി ബി ആർ ശർമ്മയും ഡോക്ടർ ബി രാജേന്ദർ വന്ദന സിംഗാൾ എന്നിവരുമാണ് സന്ദർശിക്കുന്നത് രണ്ടാമത്തെ ടീം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളും മൂന്നാമത്തെ സംഘം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും പര്യ ടനം നടത്തും നാലമത്തെ ടീം എറണാകുളം ആലപ്പുഴ കൊല്ലം ജില്ലകളാ യിരിക്കും സന്ദർശിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ ജില്ലാ കലക്ടർമാർ തുടങ്ങിയവർ പ്രളയദുരിതം സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്രസംഘത്തെ ധരിപ്പിക്കും സന്ദർശനം പൂർത്തിയാക്കി തിങ്കളാഴ്ച കേന്ദ്ര സംഘം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹത്തിന്റെ ചേംബറിൽ ചർച്ച നടത്തും അതിനുശേഷം സംഘം ഡൽഹിയിലേക്ക് മടങ്ങും

ക്രൌഡ് ഫണ്ടിംഗ് അടക്കം മാർഗ്ഗങ്ങളിലൂടെ കേരളത്തിന്റെ പുനർ നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് സമാഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു കേര ളത്തിൽ ഗവൺമെന്റ് ജീവനക്കാർ നടപ്പാക്കിയ സാലറി ചലഞ്ച് ഏറ്റെടു ക്കാൻ അമേരിക്കയിലെ മലയാളികളും തയ്യാറാകണം രാജ്യാന്തരതലത്തിലെ ഫണ്ട് സമാഹരണത്തിന് മൂന്നുമാസത്തിനകം ധനദാതാക്കളുടെ യോഗം വിളി ക്കുമെന്നും അദ്ദേഹം ന്യൂയോർക്കിലെ റോക്ക്ലാന്റ് കൌണ്ടിയിൽ അമേരി ക്കൻ മലയാളികളെ അറിയിച്ചു പ്രത്യേക വെബ് പോർട്ടൽ തുടങ്ങി സ്പോൺസർഷിപ്പ് അടക്കം സഹായ നടപടികൾ നേടാൻ ശ്രമിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അമേരിക്കയിലെ ചികിത്സക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെ ടുത്ത ആദ്യ പൊതുചടങ്ങായിരുന്നും ഇത് രദ്ദേഷ്ടങ പ്രളയക്കെടുതി നേരിടുന്ന കേരളത്തിന്റെ പുനർ നിർമ്മാണത്തിനായി അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ജി

ടിക്ക് മേൽ സെസ് ചുമത്തി പണം കണ്ടെത്താമെന്ന് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ചു പുകയില ഉൾപ്പെടെ ചില ഉത്പന്നങ്ങൾക്കുമേൽ മാത്രം നിശ്ചിത കാലത്തേക്ക് ദുരിതാശ്ചാസ സെസ് ചുമത്തി സംസ്ഥാനത്തെ സഹായിക്കാമെന്നാണ് ധാരണ

ടി കൌൺസിൽ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിടും ദർവ്വട്ടങ സംസ്ഥാനത്തെ പ്രളയ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയാണെന്ന് യു ഡി എഫ് ഉപസമിതി യോഗം തിരുവനന്ത പുരത്ത് കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ പ്രധാന ദുരിതബാധിത കേന്ദ്ര ങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഉപസമിതി തീരുമാനി ച്ചു

സി ജോസഫ് കൺവീനറായ ഉപസമിതിയായിരിക്കും കുട്ടനാട് മുതൽ വയനാട് വരെ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത് പ്രളയബാധിതർക്ക് പ്രഖ്യാ പിച്ച പതിനായിരം രൂപയുടെ സമാശ്വാസ ധനസഹായം ഇതുവരെ അറു പത് ശതമാനം പേർക്കാണ് നൽകിയതെന്ന് യോഗം വിലയിരുത്തി

രദ്ദേഷ്ടങ കേരളത്തിലെ ജനസംഖ്യയുടെ ആറിലൊന്ന് ജനങ്ങൾ പ്രളയദുരിതമനു ഭവിക്കുമ്പോൾ മന്ത്രിസഭായോഗം അജണ്ടയില്ലാതെ മാറ്റിവെച്ച നടപടി പ്രതി ഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ആന്റോ ആന്റണി എം പിയുടെ ഓഫീസിലെ പൊലീസ് അതിക്രമത്തിൽ പ്രതി ഷേധിച്ച് കോൺഗ്രസ് പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേ ളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല

ഒന്നര മാസത്തിനകം പണി പൂർത്തിയാക്കാനാണ് ല്ക്ഷ്യമിടുന്നത്

രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണെന്നും കാർഷിക നിർമ്മാണ മേഖലകൾക്ക് ഒരുലക്ഷം കോടി ഡോളർ വീതം സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകാനാവുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഇതുവരെ ന നടത്തിയ ചോദൃംചെയ്യലിനോട് ബിഷപ്പ് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അതിനിടെ മധ്യമേഖലാ ഐ ജി വിജയ് സാക്കറെ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കേണ്ട നട പടികളെ സംബന്ധിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്ന് നിയമോപദേശം തേടി രുട്ടിട്ട്ട്ട്ട്ട്ട ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ സഭാപാലന ചുമതലകളിൽ നിന്ന് മാർപാപ്പ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയതായി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് കൊച്ചിയിൽ അറിയിച്ചു ജലന്ധർ രൂപതയുടെ അപ്പോസ്ത ലിക് അഡ്മിനിസ്ട്രേറ്ററായി ബോംബെ അതിരൂപതയുടെ സഹായ മെത്രാൻ ആഗ്നലോ റൂഫിനോ ഗ്രേഷ്യസിനെ പകരം നിയമിച്ചിട്ടുണ്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അപേക്ഷ പരിഗണിച്ചാണ് നട്ടപടിയെന്നും കെ സി

സി വക്താവ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് അറിയിച്ചു തീരുമാനത്തെ സമരം ചെയ്യുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെട്ട കൂട്ടായ്മ സ്വാഗതം ചെയ്തു ബിഷപ്പി നെതിരായ പ്രക്ഷോഭത്തിന്റെ ആദ്യവിജയമാണിതെന്ന് അവർ കൊച്ചിയിൽ പറഞ്ഞു മർട്ട്ട്ട്ട്ട്ട കേന്ദ്രം കൊണ്ടുവന്ന മുത്തലാഖ് ഓർഡിനൻസ് ജനാധിപത്യ വിരുദ്ധ നടപടിയാണെന്ന് സി

എം കുറ്റപ്പെടുത്തി പാർലമെന്റിൽ ഗവൺമെന്റ് ഇതുസംബന്ധിച്ച പുതുക്കിയ നിയമ നിർമ്മാണം കൊണ്ടുവരണമെന്നും ഇപ്പോഴത്തെ ഓർഡിനൻസ് അംഗീകരിക്കാനാവില്ലെന്നും പാർട്ടി വിലയിരു ത്തി

പി ഗവൺമെന്റ് ഓർഡി നൻസ് കൊണ്ടുവന്നതെന്നും പാർട്ടി പോളിറ്റ്ബ്യൂറോ കുറ്റപ്പെടുത്തി

എം സംസ്ഥാന കമ്മിറ്റി ചേരും

ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ട് കളിയും ജയിച്ചാണ് ഇന്ത്യ സൂപ്പർഫോറിലെ ആദ്യമത്സരത്തിനിറങ്ങുന്നത് പാക്കിസ്ഥാനെതിരായ തകർപ്പൻ ജയത്തിന്റെ ആത്മവിശാസത്തിലാണ് ഇന്ത്യ ദൂബായിൽ വൈകീട്ട് അഞ്ചിനാണ് മത്സരം സൂപ്പർ ഫോറിലെ മറ്റൊരു മത്സരത്തിൽ പാക്കി സ്ഥാനും അഫ്ഗാനിസ്ഥാനും ഏറ്റുമുട്ടും

വി സിന്ധു കാർട്ടറിൽ കടന്നു തായ്ലന്റ് താര ത്തെയാണ് സിന്ധും പരാജയപ്പെടുത്തിയത്

രാവിലെ ചിന്മയമിഷൻ കേരള ഘടകം മേധാവി സ്വാമി വിവിക്താനന്ദ ശിവഗിരിയിൽ മഹാസമാധി നവതി ആച രണം ഉദ്ഘാടനം ചെയ്യും

പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും അരുവിപ്പുറം ക്ഷേത്ര ത്തിലും ആലുവ അദ്വൈതാശ്രമത്തിലും ഉപവാസ യജ്ഞവും പ്രാർത്ഥന കളും പുലർച്ചെ ആരംഭിച്ചു ദർവ്വട്ടങ ദേശീയപാതയിൽ തേഞ്ഞിപ്പലത്തിനടുത്ത് പാണമ്പ്രയിൽ ടാങ്കർ ലോറി ട മറിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു രാത്രിയുണ്ടായ അപകടത്തിൽ വാതക ചോർച്ച സംശയിക്കുന്നതിനാൽ സുരക്ഷ ശക്തമാക്കി

പൊലീസും ഫയർഫോഴ്സും സ്ഥിതിഗതി കൾ നിയന്ത്രിച്ചുവരുന്നു

എൺപ തോളം യാത്രക്കാരുമായി ബോഡിനായ്ക്കന്നൂരിൽ നിന്ന് രാജാക്കാട്ടേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മദ്യലഹരിയിൽ ബസ്സോടിച്ചു ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു രദ്ദേഷ്ടങ കണ്ണൂരിൽ എട്ട് കിലോ കഞ്ചാവുമായി രണ്ടുപ്പേരെ പൊലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂർ സിറ്റിയിലെ അബ്ദുൾ റൌഫ് മരക്കാർകണ്ടിയിലെ മുഹ മ്മദ് ഷഫീഖ് എന്നിവരാണ് പിടിയിലായത് ബെങ്കളുരുവിൽ നിന്ന് ബസ്സിൽ ബാഗുകളിലാക്കിയാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പൊലീസ് അറിയിച്ചു തലശേരിയിൽ കഞ്ചാവ് വില്പന നടത്തുകയായിരുന്ന തലശേരി സ്വദേശി അക്ബർ എന്നയാളെ എക്സൈസ് സംഘവും പിടികൂടി ദർശ്ശേര കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമലയിൽ ഇന്ന് രാത്രി പത്തിന് നടയടയ്ക്കും പതിവ് പൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജകളായ ഉദയാ സ്തമന പൂജ കളഭാഭിഷേകം പുഷ്പാഭിഷേകം പടിപൂജ എന്നിവയും ഇന്ന് ഉണ്ടാകും

പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളും ആർഭാടങ്ങളും കുറയ്ക്കും ഉത്സവ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഉച്ചക്ക് രണ്ട് മുതൽ ദേശീയ പാതയിൽ കായംകുളം മുതൽ കരുനാഗപ്പള്ളി വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി